ഇന്ത്യൻ സന്ദർശനത്തിൽ പ്രതിരോധം സുരക്ഷ വാണിജൃം എന്നിവ മുഖ്യ ചർച്ചാ വിഷയമാകും

നാടിന്റെ അന്ത്യാഞ്ജലി ലോറി ഡ്രൈവർക്കെതിരെ മനപ്പൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു

രാജ്യമെമ്പാടും മഹാശിവരാത്രി ആഘോഷങ്ങൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും

ഇന്ത്യ ന്യൂസിലാന്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യമത്സരം മഴമൂലം തടസ്സപ്പെട്ടു

സന്ദർശനത്തിലൂടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വർദ്ധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ

അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ സ്റ്റേഡിയും പ്രിധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും

സുസ്ഥിരമായ രൂപകല്പനയ്ക്ക് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൌൺസിലിന്റെ ഗോൾഡ് ഗ്രീൻ സർട്ടിഫിക്കറ്റും സ്റ്റേഡിയത്തിന് ലഭിച്ചിട്ടുണ്ട്

ഡൽഹി കന്റോൺമെന്റിൽ താൽ സേനാ ഭവന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് അരുണാചൽ പ്രദേശെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു

ജമ്മുകശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്കു്റഞ്ഞുവരുന്നതായും ഭീകരർക്ക് നേരെ ശക്തമായ പ്രതിരോദ്ധമാണ് സേന ഏർപ്പെടുത്തിയിരിക്കുന്നതെണ്ടു ജനറൽ നരവാനേ പറഞ്ഞു

കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിൽ നഗരവൽക്കരണ പരിപാടികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം ഗ്രാമങ്ങളെ കൂട്ടിയിണക്കി ഗ്രാമീണത നഷ്ടപ്പെടുത്താതെ തന്നെ നഗരസൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്താകമാനം മുന്നൂറോളം റർബൻ ഗ്രാമമേഖല കണ്ടെത്തി സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്

അപകടത്തിന് ഇടയാക്കിയ കണ്ടെയ്നർ ലോറി ഡ്രൈവർ ഒറ്റപ്പാലം സ്വദേശി എ

റോഡ് സുരക്ഷയുടെ അതീവ പ്രാധാന്യത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണീ സംഭവം

കൊറോണ വൈറസ് ബാധ നിയന്ത്രിക്കി്ൻ ചൈനയ്ക്ക് നൽകുന്ന ചെറിയൊരു സഹായമാണിതെന്ന് ആദ്ദേഷം പറഞ്ഞു ചൈനയിൽ നിന്നും ആദ്യ രണ്ട് വിമാനത്തിൽ കയറ്റാൻ അവസരം ലഭിക്കാത്ത ഇന്ത്യാക്കാരെയാണ് ഇത്തവണ നാട്ടിലെത്തിക്കുന്നത് സ്വദേശത്ത് എത്താൻ താൽപര്യമുള്ളവർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് ശ്രീ രവീഷ്കുമാർ അറിയിച്ചു അതേസമയം ചൈനയിലേക്കുള്ള യാത്രാ നിരോധനം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു

കൊറോണ ബാധിച്ച് ഇതുവരെ രണ്ട് പേരാണ് ഇറാനിൽ മരിച്ചത് പശ്ചിമേഷ്യയിലെ ആദ്യ കൊറോണ വൈറസ് ബാധ മരണം ഇറാനിലാണ് രേഖപ്പെടുത്തിയത്

അതേസമയം മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഇറാനിലേക്കുള്ള വിമാനസർവ്വീസും തുറമുഖ സർവ്വീസും നിർത്തിവെച്ചതായി കുവൈറ്റ് അറിയിച്ചു

ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് കൊറോണ ബാധിച്ച രാജ്യമായി ദക്ഷിണ കൊറിയ

ദക്ഷിണ കൊറിയയിലെ ദീഗോയിൽ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാൻ മേയർ നിർദ്ദേശിച്ചു

രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്

ഗംഗയിലെ പുണ്യസ്നാനം ശിവരാത്രി ദിനത്തിലെ പ്രധാന ചടങ്ങാണ്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ശിവരാത്രി ആശംസകൾ നേർന്നു മഹാരാഷ്ട്രയിലെ അഞ്ച് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടന്നു പൂജയോടനുബന്ധിച്ച് ജില്ലാ ഭരണകൂടം കടുത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേപ്പാളിലും ഭക്തി സാന്ദ്രമായി മഹാശിവരാത്രി ആഘോഷങ്ങൾ നടന്നു പുലർച്ചെ മുതൽ നിരവധി ശിവക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ പ്രാർത്ഥന നടത്തി കാഠ്മണ്ഡുവിലെ പ്രസിദ്ധമായ പശുപതിനാഥ ക്ഷേത്രത്തിന്റെ നാല് വാതിലുകളും രാവിലെ മൂന്ന് മണിക്ക് തന്നെ തുറന്നു പശുപതിനാഥ ക്ഷേത്രത്തിന് ചുറ്റും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശ്രീലങ്കയിൽ ഹിന്ദു മതത്തിൽപെട്ട തമിഴ് വംശജർ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്

പ്രസിഡന്റ് ഗോദബായ രജപക്സെയും പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെയും ശിവരാത്രി ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പിച്ച് പരിശോധിച്ച് ശേഷം ഇന്നത്തേക്ക് മത്സരം അവസാനിപ്പിക്കാൻ അമ്പയർമാർ തീരുമാനിക്കുകയായിരുന്നു

ടോസ് നേടിയ ന്യൂസിലന്റ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു

ക്രിക്കറ്റിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് കളിക്കുക എന്നത് ചെറുപ്പകാലം മുതലുള്ള തന്റെ സ്വപ്നമായിരുന്നുവെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു